വികസന രംഗത്ത് പ്രാദേശിക താൽപര്യങ്ങൾക്ക് അർഹമായ പ്രാധാനൃം നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കേരളത്തിൽ തിരുവനന്തപുരത്തെ നേമം റയിൽവേ കോച്ചിംഗ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം ഇന്ന്

രണ്ടാം മൽസരം ഇന്ന് ഗൂവാഹത്തിയിൽ

തമിഴ്നാട്ടിലെ ചെന്നൈയിൽ പൊതുജനയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

എ ഗവൺമെന്റ് ശക്തമായ നടപടികളാണ് കൈക്കൊള്ളുന്നതെന്നും ജനക്ഷേമത്തിനായി ബൃഹത് പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രാദേശിക താൽപര്യങ്ങളെ രാജ്യത്തിന്റെ വികസനത്തിലേക്ക് എത്തിക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നും കോൺഗ്രസ് ഒരിക്കലും പ്രാദേശിക താൽപര്യങ്ങളെ ആദരിച്ചിട്ടില്ലെന്നും ശ്രീ

താഴെ തട്ടിലുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെയാണ് കോൺഗ്രസ് തീരുമാനങ്ങൾ എടുത്തിരുന്നതെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി രാജ്യത്തിന് ശക്തമായ സുരക്ഷ നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പോലെ ഒരു നേതാവിനെ കഴിയൂവെന്ന് മുഖ്യമന്ത്രി എടപ്പാടി കെ പളനി സ്വാമി യോഗത്തിൽ അഭിപ്രായപ്പെട്ടു

പുൽവാമ ഭീകരാക്രമണശേഷം നടന്ന ബ്ലിക്കോട്ട് വ്യോമ നടപടി അതിനു തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു പരാഗ്വേ പ്രസിഡന്റ് മാരിയോ ആബ്ദോ ബനിറ്റ്സുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഉപരാഷ്ട്രപതി ഇക്കാര്യം പറഞ്ഞത് പരാഗ്വയിലെ ഇന്ത്യൻ സമൂഹത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്തു

കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും യു

ലക്നൌ സുൽത്താൻപൂർ ലക്നൌ റിംഗ്റോഡ് ഖാഗ്ര ബിഡ്ജ് ബുധൻപൂർ എന്നീ നാലുവരിപാതകളാണ് പ്രധാനമായും ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്

മരിച്ചയാൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു മ്ന്റ് മേഖലയിൽ സുരക്ഷാസേന തെരച്ചിൽ നടത്തു്ന്നതിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് തെരച്ചിൽ ്രുട്രുകയാണ് മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ മേഖ്ല്യിൽ താത്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്

മഞ്ഞു വീഴ്ചയെ തുടർന്ന് ശ്രീനഗർ കാർഗിൽ ലേ റോഡ് അടച്ചിട്ടിരിക്കുകയാണ്

ഗുണമേൻമയുള്ള ഔഷധങ്ങൾ കുറഞ്ഞ ചെലവിൽ രാജ്യമെമ്പാടും എത്തിക്കാനാണ് ജൻ ഔഷധി കേന്ദ്രങ്ങൾ തുറന്നിട്ടുള്ളത്

ഓരോ ബ്ലോക്കിലും ഒരു ഔഷധ സ്റ്റോർ എന്നതാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് എല്ലാ ഔഷധങ്ങളും എല്ലായിടത്തും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം

ആരോഗ്യ സുരക്ഷ ഗവൺമെന്റിന്റെ ഉയർന്ന പരിഗണനാ വിഷയമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു പൊതു ഔഷധങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനാണ് ജൻ ഔഷധി ദിനം ആഘോഷിക്കുന്നത്

പദ്ധതിയോട് ഭൂരിഭാഗം സംസ്ഥാനങ്ങളും മികച്ച താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത്തെന്നും ്അർഹരായ കർഷകരുടെ വിവരങ്ങൾ സംസ്ഫ്റാന്ങ്ങൾ നൽകി വരികയാണെന്നും കേന്ദ്ര കൃഷീമന്ത്രി രാധാ മോഹൻ സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമപ്പ്പ്പർത്തകരോട് പറഞ്ഞു

തെക്കൻ കശ്മീരിൽ പുൽവാമജില്ലയിലെ അവന്തിപോറ മേഖലയിൽ നിന്നാണ് പ്രതി അമീർ നസീർ മിർ നെ അറസ്റ്റ് ചെയ്തത്

നേമത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ ജി

ടെർമിനൽ യാഥാർത്ഥ്യമാകുമ്പോൾ വടക്കോട്ട് പോകുന്ന ട്രയിനുകൾക്ക് നേമത്ത് നിന്ന് യാത്ര പുറപ്പൈടാം

തുടർന്ന് ജില്ലയിലെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗവും മന്ത്രി വി

മൂന്നു മൽസരങ്ങളാണ് പരമ്പരയിലുള്ളത് വിജയിക്കാനുള്ള ആത്മവിശ്വസവുമായാണ് സ്മൃതി മന്ദാനയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ വനിതകൾ മൽസരത്തിനിറങ്ങുന്നത്

പരിക്കിനെ തുടർന്ന് സീനിയർ താരങ്ങൾ വിശമത്തിലിട്ടുയതിനാൽ താരതമ്യേന യുവാക്കളായിരിക്കും ടീമിലുണ്ടാവുക്കു ആദ്യ ദിനത്തിൽ തന്നെ ഇന്ത്യ ജപ്പാനുമായി ഏറ്റുമുട്ടും

ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്

ഒരു രാജ്യവും ഇതുവരെ ദക്ഷിണ ധ്രുവത്തിൽ എത്തിയിട്ടില്ലെന്നും അദ്ദേഹ പറഞ്ഞു

ലോകത്തെ ഏറ്റവും നീളം കൂടിയ റോപ്പ് വേകളിൽ ഒന്നായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു

സാങ്കേതിക തലത്തിലുള്ള ചർച്ച അന്നുതന്നെ നടത്താനുളള നിർദ്ദേശവും മുന്നോട്ടു വച്ചിട്ടുണ്ടെന്ന് വിദേശകാരൃമന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു

കർതാർപൂർ സാഹിബ് ഗുരുദാരയിലേക്കുളള പ്രവേശനം സുഗമമാക്കുകയാണ് ഇടനാഴിയുടെ ലക്ഷ്യം

വൃവസായ അനുകൂല സാഹചര്യവും മേക് ഇൻ ഇന്ത്യ പദ്ധതിയും മുൻനിർത്തിയാണ് നിയമത്തിൽ ഭേദഗതി വരുത്തിയത്

ജെ

അടുത്ത അഞ്ച് വർഷത്തെ രാജ്യത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് പത്രികയ്ക്ക് അന്തിമരൂപം നൽകുകയെന്ന് കേന്ദ്രമന്ത്രി രാധാ മോഹൻ സിംഗ് പറഞ്ഞു കർഷക സമൂഹത്തിന്റെ നിർദ്ദേശങ്ങളും ശുപാർശകളും പരിഗണനയിലെടുക്കും ന്യൂഡൽഹിയിൽ നടന്ന ശിൽപ്പശാലയിൽ കർഷക പ്രതിനിധികളെ സമീപിച്ച് കാർഷിക വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ മന്ത്രി ആരാഞ്ഞു